വാരാണസിയും ഖാസിപൂരും സന്ദർശിക്കും

വാരാണസിയിൽ ആറാമത് അന്താരാഷ്ട്ര നെല്ലുഗവേഷണ കേന്ദ്രത്തിന്റെ ദക്ഷിണേഷ്യ പ്രാദേശികകേന്ദ്ര ക്യാമ്പസ് അദ്ദേഹം രാഷ്ട്രത്തിനു സമർപ്പിക്കും ദക്ഷിണേഷ്യയിലെയും സാർക്ക് മേഖലയിലെയും നെല്ല് ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള കേന്ദ്രമായി ഇത് പ്രവർത്തിക്കുമെന്ന് ഒരു ഔദ്യോഗിക പത്രക്കുറിപ്പിൽ പറയുന്നു കിഴക്കൻ ഇന്ത്യയിലെ ഈ ആദ്യത്തെ അന്താരാഷ്ട്ര കേന്ദ്രം നെല്ലിന്റെ മെച്ചപ്പെട്ട ഉൽപ്പാദനത്തിൽ ഒരു പ്രധാന പങ്ക് വ്രഹിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു വാരാണസിയിലെ ദ്വീൻദിയാൽ ഹസ്തകല സംഗൂളിൽ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പ്രാദേശിക ഉച്ചകോടിയിലും പ്രധാന മന്ത്രി പങ്കെടുക്കും രാജൃത്തെ ചെറിയ പട്ടണങ്ങളിലെയും ജില്ലകളിലെയും സാധാരണ ജനങ്ങളുടെ നൈപുണ്യവും തദ്ദേശീയമായ വ്യാപാരം കരകൌശലം ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കുള്ള ആവശ്യവും വർദ്ധിപ്പിക്കാൻ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതി ലക്ഷ്യമിടുന്നു ഇതിലൂടെ കരകൌശല ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യ സംസ്കരണം കാർപ്പറ്റ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ലെതർ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിദേശനാണൃം നേടിത്തരുന്നതിനു പുറമേ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നു ഖാസിപ്പൂരിൽ മഹാരാജാ സുഹൽദിയോയുടെ സ്മരണയ്ക്കായുള്ള പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കുന്ന ശ്രീ മോദി അവിടെ ഒരു പൊതുജനറാലിയെയും അഭിസംബോധന ചെയ്യും

നാളെ വൈകിട്ട് പോർട്ട് ബ്ലെയറിൽ എത്തിച്ചേരുന്ന പ്രധാനമന്ത്രി മറ്റെന്നാൾ കാർ നിക്കോബാറിലെ സുനാമി സ്മാരകം സന്ദർശിക്കും വാൾ ഓഫ് ലോസ്റ്റ് സോൾസിൽ അദ്ദേഹം മെഴുകുതിരി കത്തിക്കുകയും സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും ചെയ്യും

ടി ഐ ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം ഏതാനും ചില അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്ക് തറക്കല്ലിടും

പോർട്ട് ബ്ലെയറിലെ തെക്കൻ മുനമ്പിൽ സ്ഥാപിക്കുന്ന ഉയരംകൂടിയ കൊടിമരത്തിൽ ദേശീയപതാക ഉയർത്തും തുടർന്ന് മറീന പാർക്കിലെ നേതാജി പ്രതിമയ്ക്കു മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്ന പ്രധാനമന്ത്രി ആൻഡമാൻ ദ്വീപ് സമൂഹങ്ങൾക്കായുള്ള സ്റ്റാർട്ട് അപ് സംരംഭത്തിന് തുടക്കം കുറിക്കും ഇതുകൂടാതെ ഏഴ് മെഗാവാട്ട് ശേഷിയുള്ള സൌരോർജ്ജ പ്താന്റിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവ്വഹിക്കും ഒരു പൊതുയോഗത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും

ആഭ്യന്തരവിപണിയിൽ ഉള്ളിക്ക് മികച്ച വില ലഭിക്കാൻ ഇത് സഹായിക്കുമെന്ന് കാർഷികമന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഉള്ളിയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ വില പിടിച്ച് നിർത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം പറഞ്ഞു

കാർഷിക കയറ്റുമതിയിൽ ് ഏറ്റവും ഉയർന്ന് ധ്നസഹായം ഉള്ളിയ്ക്കാണ് ലഭിക്കുന്നതെന്നും കാർഷിക മന്ത്രാലയം വ്യക്തമാക്കി

ചെറുകിട മധ്യവർഗ്ഗു സംരംഭകരെ സഹായിക്കാൻ കേന്ദ്രഗവൺമെന്റും റിസർവ്വ് ബാങ്കും വിവിധ നടപടികൾ സ്വീകരിച്ചുവരുന്നതായും മന്ത്രി പറഞ്ഞു

അഗർത്തല മുനിസിപ്പൽ കോർപ്പറേഷനിലെ നാല് വാർഡുകളും സ്വന്തമാക്കിയ പാർട്ടി പ്രതിപക്ഷമായ സിപിഎമ്മിനേയും കോൺഗ്രസ്സിനേയും ബഹുദൂരം പിന്നിലാക്കി ഇന്നലെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടൂപ്പ് ഫലങ്ങൾ പുറത്തു വിട്ടത് തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രതിപക്ഷമായ സി

എമ്മിന് ഒരു സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു

ഗോവയിലെ മുതിർന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തും ഇന്നലെ വൈകുന്നേരമാണ് ശ്രീ അശോക് ലാവാസ ഗോവയിൽ എത്തിയത്

ആഭ്യന്തരമന്ത്രിയായി ബാലാ ബച്ചണിയും ്ധനകാര്യമന്ത്രിയായി തരുൺ ഭാനോട്ടിനെയും നിയമിച്ചു നഗരുവികസന വകുപ്പ് മുതിർന്ന നേതാവ് ദിഗ് വിജയസിംഗിന്റെ മകൻ ജയ്വർദ്ധൻ സിംഗിന് നൽകി

സൈബർ രംഗത്ത് ഇന്ന് ദൃശ്യമാകുന്ന പല തരത്തിലുള്ള ക്രമക്കേടുകൾ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവ് പകരാൻ ഉതകുന്നതാണ് കൈപ്പൂസ്തകം സമൂഹമാധൃമങ്ങളിൽ അപരിചിതരിൽ നിന്ന് കുട്ടികൾ വഞ്ചിതരാകുന്നത് തടയുകയാണ് ലക്ഷ്യം സൈബർ രംഗത്തെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവാൻമാരാക്കി അവരിൽ സ്വയം പ്രതിരോധം വളർത്തിയെടുക്കാൻ കൈപ്പുസ്തകം ഉപകരിക്കും

നാലാം തവണയും ഭരണം പിടിക്കാൻ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് രംഗത്തുണ്ട് അഴിമതി ആരോപണങ്ങളുടെ പേരിൽ ജയിലിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് ഖാലിദാസിയയാണ് ഹസീനയുടെ എതിരാളി

നയിക്കുന്ന നാഷണൽ യുണൈറ്റഡ് ഫ്രണ്ട് പാർട്ടിയാണ് ഹസീനയ്ക്ക് പ്രതിപക്ഷ നിരയിലുള്ള പ്രധാന വെല്ലുവിളി ബംഗ്ലാദേശിന്റെ പ്രതിനൊന്നാമത് പൊതുതെരഞ്ഞെടുപ്പാണിത്

ഇന്ത്യൻ വംശജരാ്യ അമേരിക്കൻ ഡോക്ടർമാരുടെ അസോസിയേഷനും ഇന്ത്യൻ പ്രംശജരായ ഡോക്ടർമാരുടെ ആഗോള അസോസിയേഷനും ചേർന്നാണ് ഉച്ചകോടി സംഘടിപ്പിച്ചത്

എന്നാലത് ഗുണമേന്മയിൽ വിട്ടുവീഴ്ചവർത്തി കൊണ്ടാവരുതെന്നും അദ്ദേഹം പറഞ്ഞു

അതിർത്തിയിൽ മതിൽ നിർമ്മിക്കാൻ തുക അനുവദിക്കുന്നതിനെ ഡെമോക്രാറ്റുകൾ എതിർക്കുന്നതാണ് ഭീഷണിക്ക് കാരണം

പ്രശ്നത്തിലിടപെട്ട് അനുരഞ്ജനത്തിന് ശ്രമം നടക്കുന്നുവെങ്കിലും ഒന്നും ഫലപ്രദമാകുന്നില്ല

പുരുഷ വനിതാ സിംഗിൾസ് മൽസരങ്ങളിലും മിക്സഡ് ഡബിൾസിലും അവാദ് വാരിയേഴ്സ് ജേതാക്കളായി

ഇന്ന് പൂനെയിലെ ഛത്രപതി ശിവജി സ്പോർട്സ് കോംപ്ലക്സിൽ നടക്കുന്ന മൽസരത്തിൽ മുംബൈ റോക്കറ്റ്സ് പൂനെ സെവൻ എയ്സസിനെയും ഡൽഹി ഡാഷേഴ്സ് നോർത്ത് ഈസ്റ്റേൺ വാരിയേഴ്സിനെയും നേരിടും